സംസ്കാരം ഉച്ചകഴിഞ്ഞ് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും

തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തിപ്രാപിച്ചതോടെ കേരളത്തിൽ മഴ കനക്കുന്നു

ഇന്ത്യൻതാരം പി

സിന്ധു ഇന്ന് ജപ്പാന്റെ അകാനെ യമഗുച്ചിയെ നേരിടും

പൂർണ ഔദ്യോഗിക ബഹുമതികളോടെ ഡൽഹിയിലെ നിഗംബോധ് ഘട്ടിലാണ് സംസ്കാര ചടങ്ങ് നടക്കുക ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെയാണ് ഷീലാ ദീക്ഷിത് വിടവാങ്ങിയത്

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു

എ അധ്യക്ഷ സോണിയഗാന്ധി തുടങ്ങിയ നേതാക്കൾ ദീക്ഷിതിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ദേശീയ തലസ്ഥാനത്തെ ആധുനിക വൽകരിക്കുന്നതിന് ഷീലാ ദീക്ഷിത് വഹിച്ച പങ്ക് അവിസ്മരണീയമാണെന്ന് രാഷട്രപതി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു മികച്ച ഭരണാധികാരിയാണ് നഷ്ടമായതെന്ന് ഉപരാഷ്ട്രപതി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി ലിൻസ

എൽ

ക്രമേണ പേടകത്തിൽ നിന്നും ഗവേഷണ പദ്ധതി കൾക്കായി സജ്ജീകരിച്ച റോവർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിച്ച് അയയ്ക്കും

മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്

തമിഴ്നാട് സ്വദേശി സഹായ് രാജിന്റെ മൃതദേഹമാണ് അഞ്ചുതെങ്ങിൽ കരയ്ക്കടിഞ്ഞത്

വെള്ളിയാഴ്ച രാവിലെ നീണ്ടകര തുറമുഖത്തു നിന്നും ഒന്നര നോട്ടിക്കൽ മൈൽ ദൂരത്താണ് കടലിൽ ഇവരുടെ വള്ളം മറിഞ്ഞത്

ഇന്ത്യക്കാരെ വിട്ട് നൽകാൻ ഇറാൻ ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെട്ടുവരികയാണെന്ന് വിദേശകാര്യമന്ത്രാലയ വക്താവ് രവീഷ് കുമാർ അറിയിച്ചു

ബ്രിട്ടീഷ് കപ്പലുകളുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നതാണ് ഇത്തരം നടപടിയെന്നും ജെറമി ഹണ്ട് പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി ലിൻസ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായി രാജ്യത്ത് ആകെ ഒന്നര ലക്ഷം ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് സാർവ്വത്രിക ആരോഗ്യം നടപ്പാക്കുന്നതിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി മാതൃകയാണെന്ന് ഹൈദ്രാബാദിൽ സി

ഹർഷവർദ്ധൻ പറഞ്ഞു അപൂർവ്വ രോഗങ്ങളാലും ജനിതക രോഗങ്ങളാലും കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ എല്ലാവരും മുന്നോട്ടുവരണമെന്ന് ഡോ ഹർഷ വർദ്ധൻ ആവശ്യപ്പെട്ടു

പുതിയ ദേശീയ മെഡിക്കൽ കൌൺസിൽ ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് ഡോ

ജക്കാർത്തയിൽ ഇന്നല്ലെ നിട്ടുക്ക് സെമിയിൽ ലോക മൂന്നാം നമ്പർ താരമായ ചൈനയുട്ട് പ്ലെ്ട്പ്ൻ യുഫെയിയെ അഞ്ചാം സീഡായ സിന്ധു നേരിട്ടുള്ള ഗെയിമുകൾക്കാണ് പരാജയപ്പെടുത്തിയത്

ഈ മാസം രണ്ട് മുതൽ യൂറോപ്പിൽ നടക്കുന്ന അത്ലറ്റിക് മീറ്റിൽ ഹിമ ഇതുവരെ അഞ്ച് സ്വർണം നേടി

കിസാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്

പ്രധാനമന്ത്രിയായി രണ്ടാംതവണയും അധികാരത്തിൽ എത്തിയശേഷം നടത്തുന്ന പരിപാടിയുടെ രണ്ടാംലക്കമാണ് ഇത് കഴിഞ്ഞതവണ പുസ്തകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പ്രധാനമന്ത്രി പരാമർശിച്ചത്

മാറ്റണമെന്ന് ഇടുക്കിയിലെ ആദിവാസി മേഖലയിൽ സ്ഥിതിചെയ്യുന്ന അക്ഷര വായനശാല കുട്ടികൾക്ക് ഏറെ പ്രയോജനപ്രദമാണെന്ന് ശ്രീ നരേന്ദ്രമോദി മൻകി ബാത്തിൽ പരാമർശിച്ചിരുന്നു

ജെ

അധ്യക്ഷൻ മംങ്കെ റാം ഗാർഗിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു

ജെ

വർക്കിംഗ് പ്രസിഡന്റ് ജെ

നദ്ദ മറ്റ് നേതാക്കൾ തുടങ്ങിയവരും റാം ഗാർഗിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു

ധർമശാലയ്ക്ക് സമീപമുള്ള ഭാഗ്സുനാഗ് വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ പോയ വിദേശ സഞ്ചാരികളുടെ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ കാൻഗ്രയിലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതായി പോലീസ് അറിയിച്ചു

ഭരണകക്ഷിയായ ലിബറൽ ഡമോക്രാറ്റിക് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന പ്രധാനമന്ത്രി ഷിൻസോ ആബേയ്ക്കാണ് വിജയ സാധ്യതയെന്ന് മാധ്യമ സർവ്വേകൾ സൂചിപ്പിക്കുന്നു

സുരക്ഷാ കാരണങ്ങളാലാണ് സർവ്വീസ് റദ്ദാക്കിയതെന്ന് വിമാനകമ്പനി അറിയിച്ചു എന്നാൽ എന്താണ് സുരക്ഷാ പ്രശ്നമെന്ന് ബ്രിട്ടീഷ് എയർവേസ് വൃക്തമാക്കിയിട്ടില്ല അതേസമയം ഇതു സംബന്ധിച്ച് തങ്ങൾക്ക് വിവരമെന്നും ലഭിച്ചിട്ടില്ലെന്ന് കെയ്റോ എയർപോർട്ട് അധികൃതർ പറഞ്ഞു